എസ്

കോട്ടയത്തെ ് സ്സീറ്റുകളിലെ തർക്കം പരിഹരിക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായും കോൺഗ്രസ് ഉഭയകക്ഷി എൻഡിഎയിൽ ബിജെപിയുടേയും ബി ഡി ജെ എസിന്റേയും സ്ഥാനാർഥി നിർണയ ചർച്ചകൾ അവസാനഘട്ടത്തിലെത്തി

എൽ ഫുട്ബോളിൽ ആദ്യ സെമിയിൽ ഇന്ന് ഗോവയും മുംബൈ സിറ്റിയും ഏറ്റുമുട്ടും

രണ്ടാം സെമിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എ ടി